ജെ പി എം

സംഘടിപ്പിച്ച ശില്പശാല്യുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു

എസ് ആർ

ദ്രുത പ്രതികരണ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു

ഇന്ത്യൻ ജോഡി തായ്ലൻഡ് ഓപ്പണിൽ രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കീരിടം

വടക്കൻ കാശ്മീരിൽ കുപ്പ്വാര ജില്ലയിലെ കേരൽ സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്കടുത്ത് നുഴഞ്ഞു കയറ്റത്തിനിടെ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം അംഗങ്ങളുടെ മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ട് മുതൽ പ്രദേശത്ത് കിടക്കുകയാണ് മൃതദേഹം ഏറ്റെടുക്കാവുന്നതാണെന്ന് ഇന്നലെ തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് സൈനിക വക്താവ് കേണൽ രാജേഷ് കാലിയ പറഞ്ഞു നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തിനിടെ അഞ്ച് മുതൽ ഏഴ് പേരെ വരെ സൈന്യം വകവരുത്തിയതായാണ് റിപ്പോർട്ട്

ജെ

മാർക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന പരിശീ ലന പരിപാടി അഭ്യാസ് വർഗ്ഗയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അഭിസംബോധന ചെയ്യുകയാണ് മന്ത്രിയോ നിയമസഭാംഗമോ ആയാലും അടിസ്ഥാന തലത്തിലെ പ്രവർത്തകരായിതന്നെ നിലകൊള്ളണമെന്ന് ബി ജെ

ജെ

പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ എന്നിവരും ശില്പശാലയിൽ പങ്കെടുത്തു

പിമാർക്ക് പാർലമെന്ററി നടപ ടിക്രമങ്ങളിൽ പരിശീലനം നൽകുന്നത് ലക്ഷ്യം വച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്

ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലഖ്നൌവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

പകരം നിയമിച്ച ഉദ്യോഗസ്ഥരായ എസ്

ലഖ്നൌ ഉന്നാവോ ബന്ധാ ഫത്തേപൂർ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു തിരച്ചിൽ

പീഡനകേസിലെ പ്രതിയായ പുറത്താക്കപ്പെട്ട ബി ജെ

വെങ്കയ്യ നായിഡു നിർവ്വഹിച്ചു ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ കയ്യെഴുത്ത് പ്രതികൾ ശ്രീ

മികച്ച ലൈബ്രറി എന്നത് വിജ്ഞാനക്ഷേത്രമാണെന്ന് പിന്നീട് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത അദ്ദേഹം പറഞ്ഞു സാമൂഹൃ പുരോഗതിയ്ക്ക് നിർണ്ണായകമായ കാരൃങ്ങൾ നൽകാൻ പാറ്റ്ന സർവ്വകലാശാലയ്ക്ക് ആയിട്ടുണ്ടെന്നും ഉപരാഷ്ട്രപതി വിശദീകരിച്ചു സർവ്വകലാശാലയിലുള്ള അപൂർവ്വ കയ്യെഴുത്ത് പ്രതികൾ വരുംതലമുറകൾക്ക് സഹായകരമാകുമെന്നും ശ്രീ നായിഡു അഭിപ്രായപ്പെട്ടു

ഡൽഹിയിൽ ടെക്നോളജി എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഡി ആർ ഡി ഒ യും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ പരീക്ഷിക്കുന്നത്

എസ്

ഓഗസ്റ്റ് ദ ന് പകർത്തിയ ഭൂമിയുടെ സുന്ദര ചിത്രങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്

പേടകത്തിലുള്ള അത്യാധുനിക കൃാമറ വഴി കൂടുതൽ ചിത്രങ്ങൾക്കായി കാതോർത്തിരിക്കുകയാണ് ശാസ്ത്രലോകം

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി

ലോക ചാമ്പൃൻമാരും ലോക രണ്ടാം റാങ്കുകാരുമായ ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരങ്ങളായ സ്വാതിക് സായരാജ് റെങ്കി റെഡ്സിയും ചിരാഗ് ഷെട്ടിയും ചരിത്രം കുറിച്ചത്

ഫൈനലിൽ ചൈനയുടെ ലീ യുൻ ഹ്യു ല്യൂ യു ചെൻ സഖ്യത്തെ ഒന്നിനെതിരെ രണ്ടു സെറ്റുകൾക്കാണ് ഇവർ പരാജയപ്പെടുത്തിയത്

അപകടത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാരൃ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന ശ്രീറാമിനെ മജിസ്ട്രേറ്റാണ് ജില്ലാ ജയിലിലേക്ക് അയയ്ച്ചത്

റെയിഗട് നാസിക് സംഗ്ലി സതാറാ ദൂലെ കോലാപൂർ താനെ പാൽക്കർ ജില്ലകൾ വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലാണ് മുംബൈയിലും പരിസരപ്രദേശങ്ങളിലും നൂറ് മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചത്

താനെയിലും പാൽക്കർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും വൈദ്യുതി വിതരണം ഏതാണ്ട് തടസ്സപ്പെട്ടു

റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതുമൂലം പശ്ചിമ റെയിൽവേ വിവിധ ട്രെയിനുകളുടെ സർവ്വീസ് നിർത്തി വച്ചു

മുഖ്യമന്ത്രി വിജയ് രൂപാണി ഇന്നലെ രാത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശ്വമിത്രി നദിയിലെ ജലവിതാനം കുറഞ്ഞതിനെ തുടർന്ന് വഡോദര നഗരത്തിലെ വെള്ളപ്പൊക്ക കെടുതികളിൽ അയവ് വന്നു

ഹർഷവർദ്ധൻ എയിംസിലെ സംഘടനകൾ റസിഡന്റ് ഡോക്ടർമാർ എന്നിവരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്